പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെയും കാസർകോട് ജില്ലയിൽ വ്യാഴാഴ്ച വരെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

മലയോര മേഖലയിലേക്ക് രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ശക്തമായ കടലാക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തീരദേശ വാസികൾ ജാഗ്രതപാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു